നിരോധനാജ്ഞ ശനിയാഴ്ചവരെ നീട്ടി

നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു

എസ് ആർ

ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട പുതുതലമുറ സേവനങ്ങൾ രാജ്യത്ത് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

നിലവിൽ ഭൂഗർഭ കേബിൾ വഴിയാണ് രാജ്യത്ത് മിക്ക മേഖലയിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകുന്നത് ന്യൂസ് ഡസ്ക് ആകാശവാണി

രണ്ട് സംസ്ഥാനങ്ങളിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാജസ്ഥാനിലെ ഹനുമൻഗാർഹ് സിക്കാർ ജയ്പൂർ എന്നിവിടങ്ങളിൽ റാലികളെ അഭിസംബോധന ചെയ്തു

കരുതൽ തടങ്കലിലായിരുന്ന തെലങ്കാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് എ

ജെ

സമാധാനപരമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുന്നതിനായി സുരക്ഷ ശക്തമാക്കി

ഡൽഹി വിമാനത്താവളത്തിൽ വച്ച് സി ബി ഐ മിഷേലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി

ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ധോവലിന്റെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമായാണ് ക്രിസ്റ്റ്യൻ മിഷേലിനെ ഇന്ത്യയിൽ എത്തിക്കാനായത് വിദേശകാര്യമന്ത്രി സുഷമാ സ്വരാജ് യു

ഇ യിലെ ഉന്നത ഭരണാധികാരികളുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു

കേസിൽ ഇടനിലക്കാരെന്നു കരുതുന്ന മൂന്ന് പേരിൽ ഒരാളാണ് ക്രിസ്റ്റ്യൻ മിഷേൽ

ന്യൂസ് ഡസ്ക് ആകാശവാണി

റിസർവ്വ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേലിന്റെ അദ്ധ്യക്ഷതയിൽ ആറംഗ ധന നയ സമിതിയുടെ ത്രിദിനയോഗത്തിന് ഇന്നലെ തുടക്കമായി വായ്പ നിരക്കുകളിൽ ആർ

ഐ മാറ്റം വരുത്താനിടയില്ലെന്നാണ് വിദഗ്ദ്ധരുടെ വിലയിരുത്തൽ

അരനൂറ്റാണ്ട് പഴക്കമുള്ള ആദായനികുകുതി നിയമത്തിലെ അവ്യക്തതകൾ നീക്കി കൂടുതൽ സൌകര്യപ്രദമായി തരത്തിലാണ് നിയമത്തിന്റെ കരട് തയ്യാറാക്കുന്നത്

എ ഗവൺമെന്റിന്റെ ഇടക്കാല ബജറ്റ്

രാജ്യത്തെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ നോട്ട് അസാധുവാക്കൽ വളരെയധികം സഹായിച്ചതായും അദ്ദേഹം ഇന്നലെ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ബി ഡി റ്റി ചെയർമാൻ അറിയിച്ചു

ബി ഡി

സിയിൽ ഇനിമുതൽ ആറ് ബർത്തുകൾ മാറ്റിവയ്ക്കും സ്ത്രീകൾക്ക് സൌകര്യപൂർവ്വം യാത്ര ചെയ്യാൻ സാഹചര്യം ഒരുക്കുന്നതിനാണ് ട്രെയിനുകളിൽ ഈ റിസർവേഷൻ ഏർപ്പെടുത്തിയതെന്ന് റെയിൽവെ അറിയിച്ചു

ഗരീബ്രഥ് എക്സ്പ്രസ്സിലും തേർഡ് ക്സാസ് എ

ജി പോലുള്ള ഇന്ധനങ്ങളും ഉപയോഗിക്കാൻ കേന്ദ്ര റ്റോഡ് ഗതാഗതമന്ത്രാലയം അനുമതി നൽകി ട്രാക്ടറുകൾ പൃവർട്ടില്ല്റുകൾ കൊയ്ത്ത് യന്ത്രങ്ങൾ നിർമ്മാണ യന്ത്രങ്ങൾ എന്നിവയിലാണ് സി എൻ

ജൈവ ഇന്ധനം ഉപയ്യോഗിക്കുന്നതോടെ ഈ വാഹനങ്ങൾ പരിസ്ഥിതി സൌഹൃദവും ് ചെലവു കുറഞ്ഞതുമാകും

നയ്പിതാ യങ്കൂൺ എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന ശ്രീ കോവിന്ദ് മ്യാൻമാർ പ്രസിഡന്റുമായും കൌൺസിലർ ഓങ്ങ് സാൻ സൂചിയുമായും കൂടിക്കാഴ്ച നടത്തും

ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രധാനമന്ത്രിയ്ക്കെതിരെ ശക്തമായ വിമർശനം ഉയർന്നു കഴിഞ്ഞമാസം തെരേസാ മെയ് യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാർ യഥാസമയം അറിയിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്ന് കുറ്റപ്പെടുത്തുന്ന പ്രമേയം ഹൌസ് ഓഫ് കോമൺസിൽ പാസായി

കെ ഗവൺമെന്റിന് പാർലമെന്റിൽ ഇത്തരം സാഹചര്യം അഭിമുഖീകരിക്കേണ്ടിവന്നത്

നിരോധനാജ്ഞയുള്ള മേഖലകളിൽ സംഘം പ്രേര്ൽ പ്രകടനം പൊതുയോഗം വഴി തടയൽ എന്നിവ നിരോധിച്ചു തീർത്ഥാടകരുടെ വാഹനയാത്ര സഞ്ചാരം എന്നിവ നിരോധനാജ്ഞയിൽ നിന്ന് ഒഴിവാക്കി ഒറ്റയ്ക്കോ കൂട്ടമായോ തീർത്ഥാടകർ എത്തുന്നതിനോ ശരണം വിളിക്കുന്നതിനോ നാമജപം നടത്തുന്നതിനോ വിലക്കില്ല

കാണിക്കവരുമാനത്തിലും വർദ്ധനവുണ്ടായി

രഞ്ജി ട്രോഫിയിൽ നാളെ ആന്ധ്രയ്ക്കെതിരെയാണ് ഈ ഡൽഹിക്കാരന്റെ അവസാനമൽസരം

ഗോവധം നടത്തിയവർക്കെതിരെ ശ്ക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന്ത്തെ് മുതിർന്ന ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു

ഭക്ഷ്യസ്വയം പര്യാപ്തതക്കായി ഗവൺമെന്റ് നിരവധി നടപടികൾ കൊക്കൊണ്ടു

ആർക്കും പരിക്കില്ല സമീപത്ത് ബോട്ടുകളും പെട്രോൾ ബങ്കും വീടുകളും ഉണ്ടായിരുന്നെങ്കിലും അവയിലേക്ക് പടരാതെ തീ കെടുത്താൻ അഗ്നിശമന സേനയ്ക്ക് സാധിച്ചു